സിന്ധു സെമിയിൽ

എസ്

സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ജി

നിലവിലെ പ്രശ്നങ്ങളും പുതിയ നിർദ്ദേശങ്ങളും യോഗം വിലയിരുത്തും

റുപേ കാർഡിനും ഭീം ആപ്പിനും പ്രോത്സാഹനം നൽകാനുളള നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ച്ചെയ്യും

ജെ

ജെ പി കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു

ജെ പി ശിവസേനയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ പരാജയപ്പെടുത്തി ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസത്തിനും സംവരണം ആവശ്യപ്പെട്ട് മറാത്താസമുദായം പ്രക്ഷോഭം നടത്തുന്നതിനിടെയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയം പാർട്ടിനയങ്ങളുടെയും ജനങ്ങളുടെ വിശ്വാസത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്ന വികസന പദ്ധതികളുടെയും ഫലമായാണ് ഈ വിജയമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു

ജെ പി പാർട്ടിയിലുള്ള തുടർച്ചയായ വിശ്വാസത്തിന് മഹാരാഷ്ട്രയിലെ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞ് ട്വീറ്റ് ചെയ്തു

ജെ പി പ്രസിഡന്റ് അമിത്ഷായും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു

നിരവധി പേർക്ക് പരിക്കേറ്റു

ഗ്രാനൈറ്റ് പൊട്ടിക്കാനുള്ള ജലാറ്റിൻ സ്റ്റിക്ക് സൂക്ഷിച്ചിരുന്ന ഷെഡിലായിരുന്നു പൊട്ടിത്തെറി

ഒരാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോക്ടുന്ന വഴി മരണമടഞ്ഞു

മരിച്ചവരിൽ അധികവും ഒഡീഷയിൽ നിന്നുള്ള തൊഴിലാളികളാണ്

അഞ്ചുകോടി എന്ന ലക്ഷ്യം നിർദ്ദിഷ്ടകാലാവധിക്കു മുൻപുതന്നെ കൈവരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

പദ്ധതി വൻ വിജയമായതിൽ പെട്രോളിയം മന്ത്രി ധരമ്മേന്ദ്ര പ്രധാനെ ശ്രീ

പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ അഞ്ചു കോടി പാചകവാതക കണക്ഷനുകൾ നൽകി രാജ്യം ഇന്നലെയാണ് പദ്ധതി ലക്ഷ്യം കൈവരിച്ചത് പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ ഡൽഹിയിലെ ശ്രീമതി ത്ക്ക് ദ്വീരാന് ലോക്സഭ സ്പീക്കർ സുമിത്രാ മഹാജൻ സൌജ്നൃ പാചക വാതക കണക്ഷൻ നൽകിയതോടെയാണ് ഈ ലക്ഷ്യം പൂർത്തീകരിച്ചത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ബി ഐയുടെ അപേക്ഷ ലഭിച്ചതായി വിദേശകാര്യമന്ത്രാലയം സ്ഥിരീകരിച്ചു ഈ വിഷയത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ചോക്സി ഇപ്പോൾ കഴിയുന്ന ആന്റിഗ്വ അധികൃതരോട് ചോക്സിയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു

കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ശു്ചൂീകരണം വ്യക്തി ശുചിത്വം എന്നീ കാര്യങ്ങളിലെ നേട്ടങ്ങൾ വിലയിരുത്തി

ഷോപ്പിയാൻ ജില്ലയിലെ കിലോറ ഗ്രാമത്തിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഭീകരർ ഒളിച്ചു കഴിയുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത് ഷോപിയാനിലെ മാലിക്ഗുണ്ട് സ്വദേശി ഉമർ നസീർ മാലിക്ക് എന്ന ഭീകരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് സുരക്ഷാ സേന അറിയിച്ചു ഒരു റൈഫിൾ കണ്ടടുത്തിട്ടുണ്ട്

തെലങ്കാന തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത് ഇന്ന് വൈകിട്ട് ഹൈദരാബാദിൽ എത്തുന്ന രാഷ്ട്രപതി ഹൈദരാബാദ് ഐ

നാളെ തമിഴ്നാട്ടിലെത്തുന്ന രാഷ്ട്രപതി കാവേരി ആശുപത്രിയിൽ ചികിൽസയിൽ കഴിയുന്ന ഡി

പ്രസിഡന്റ് എം

തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സംസ്ഥാന നിയമസഭയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് ഫെസ്റ്റിവൽ ഓഫ് ഡമോക്രസി ഉദ്ഘാടന്റും ചെയ്യും

ആഭ്യന്ത്ര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി എ

ധർമ്മറെഡ്സിയുടെ നേതൃത്വത്തിലുളള ഏഴംഗ സംഘമാണ് സന്ദർശനം നടത്തുന്നത്

സംസ്ഥാന ദുരിതാശ്ചാസ കമ്മീഷണറുമായി ചൊവ്വാഴ്ച വൈകിട്ട് സംഘം കൂടിക്കാഴ്ച നടത്തും എട്ടാം തീയതി മുതൽ വിവിധ ജില്ലകളിലെ ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതി അവലോകനം ചെയ്യും ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഒരു സംഘവും എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ മറ്റൊരു സംഘവും സന്ദർശിക്കും

സിന്ധു ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ സെമിയിൽ കടന്നു ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധു സെമിയിൽ പ്രവേശിച്ചത്

തുടർച്ചയായ രണ്ടാം വർഷവും ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ നാലാം തവണയുമാണ് സിന്ധു സെമിയിൽ കട്ന്നത്

സ്ഥിതി അവലോകനം ചെയ്യാൻ ഇന്നലെ മുഖ്യ്മന്ത്രി സർബാനന്ദ സോണോവാൾ ഗുവാഹത്തിയിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു പ്രളയത്തിൽപ്പെട്ടു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ മുഖ്യമുന്തി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധൻസിരി നദി കരകവിഞ്ഞ്തിനെ തുടർന്ന് കേന്ദ്ര ജലകമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു

മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി ഒഡീഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിനീത് ശരൺ എന്നിവരെയും സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിച്ചിട്ടുണ്ട്

എല്ലാ മേഖലകളിലും മധ്യേഷ്യൻ രാജ്യമായ കിർഗിസ്ഥാനും ഇന്ത്യയുമായുള്ള ബന്ധം വ്യാപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനുമുള്ള നടപടികൾ ഇരുവരും ചർച്ച ചെയ്തു കസാഖ്സ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീമതി സുഷമ കിഴക്കൻ കിർഗിസ്ഥാനിലെ ഇസിക്കുളിൽ എത്തിയത്

എഫ് ഷെഹരിയാറിനെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ അദ്ധ്യക്ഷനായി വീണ്ടും തെരഞ്ഞെടുത്തു

മൂന്നിൽ രണ്ടു ഭൂരിപക്ഷത്തിലാണ് കമ്മിറ്റി തീരുമാനം നിരസിച്ചത്

ഭരണഘടനാ കൌൺസിൽ ജൂണിലാണ് സീനിയർ ജഡ്ജി ജസ്റ്റീസ് ജോഷിയെ ചീഫ് ജസ്റ്റീസ് നിയമ്നത്തിന് ശുപാർശ ചെയ്തത്